ഇവരെ മോചിപ്പിക്കാൻ ശ്രമം നടത്തണ മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു

ഇറാനും ബ്രിട്ടനും ഈ മാസം പരസ്പരം പിടിച്ചെടുത്ത രണ്ട് എണ്ണക്കപ്പലു കളിൽ ആറു മലയാളികൾ ഉള്ളതായി റിപ്പോർട്ട് മൂന്നുപേർ എറണാകുളം ജില്ല ക്കാരാണെന്നും മറ്റ് മൂന്നുപേർ മലപ്പുറം വണ്ടൂർ ഗുരുവായൂർ കാസർകോട് സ്വദേ ശികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു

എറണാകുളം കളമശ്ശേരി സ്വദേശി ഡിജോ പാപ്പച്ചനും പള്ളുരുത്തി തൃപ്പൂ ണിത്തുറ സ്വദേശികളുമാണ് കപ്പലിൽ ഉള്ള മലയാളികളെന്നാണ് സൂചന

അജ്മലും ഗുരുവായൂർ സ്വദേശി റെജിനും കാസർകോട് ഉദുമ സ്വദേശി നമ്പ്യാർക്കീച്ചിൽ സ്വദേശി പി

അജ്മൽ വീട്ടിലേക്ക് വിളിച്ച് തങ്ങൾ സുരക്ഷിതരാണെന്ന് അറിയിച്ചിരുന്നു രണ്ട് എണ്ണക്കപ്പലുകളിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു ഇവരുടെ വിശദാംശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവര ങ്ങൾ ലഭ്യമായാൽ അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിൽ ഗവൺമെന്റിന് അവരെ സഹായിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കപ്പലിൽ കുടുങ്ങിയവരെ സുരക്ഷിതരായി മോചിപ്പിക്കാൻ ശ്രമം ഊർജ്ജിതമാക്കിയതായും ഇവരുടെ പേരുവിവരങ്ങളെകുറിച്ച് ഔദ്യോഗിക സ്ഥിരീ കരണം ലഭിച്ചിട്ടില്ലെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ന്യൂഡൽഹി യിൽ അറിയിച്ചു

മലബാർ മേഖലയിൽ മഴ കന ക്കുമെന്നാണ് റിപ്പോർട്ട് നാലുപേർ മരിച്ചു കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളി കൾ ഉൾപ്പെടെ മൂന്നുപേർക്കായി തിരച്ചിൽ തുട്രുന്നു എറണാകുളം ജില്ലയിലെ എടവനക്കാട് മതിൽ ഇടിഞ്ഞുവീണ് തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി തങ്കവേലു വാണ് മരിച്ചത് ഒരാൾക്ക് പരിക്കേറ്റു തീരപ്രദേശങ്ങളിൽ മഴയുടെ ശക്തി കുറ ഞ്ഞെങ്കിലും കടൽക്ഷോഭം ശക്തമായി തുടരുന്നുണ്ട്

കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കാസർ കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടായിരിക്കും

മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

കോഴിക്കോട് ജില്ലയിൽ പ്ലസ്ടു വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു അങ്കണവാടികൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും ഐ സി എസ് ഇ സി ബി എസ് ഇ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമാണ് കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ഇല്ലെന്നും കലക്ടർ അറിയിച്ചു

അങ്കണവാടികൾക്കും അവധി ബാധകമാണ് സർവ്വകലാശാല പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കോട്ടയം നഗരസഭയിലെയും ആർപ്പൂക്കര കുമരകം ഐമനം തിരുവാർപ്പ് പഞ്ചായത്തുകളിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപ നങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കേന്ദ്രഭരണ പ്രദേശമായ മാഹി യിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നു

കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു ഉളിക്കൽ മണിക്കടവിൽ ചപ്പാത്ത് പാലം മുറിച്ച് കടക്കവെ ജീപ്പ് പുഴയിൽ വീണ് കാണാതായ ലജീഷിനെ കണ്ടെത്താൻ ശ്രമം ഇന്നും തുടരും

ഇവരെ രാത്രിയോടെ രക്ഷപ്പെടുത്തി

മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ രാത്രിയാണ് റോപ്പ് ഉപയോഗിച്ച് ഫയർഫോഴ്സ് സാഹസികമായി ഇവരെ രക്ഷപ്പെടുത്തിയത് ് ് ് ് ് ് കോഴിക്കോട് ജില്ലയിലെ വടകര വില്യാപ്പള്ളിയിൽ രണ്ടു കുടുംബങ്ങളിലെ പത്ത് പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപാർപ്പിച്ചു ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി നാല് താലൂക്കുകളിലും കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട്

റൂം തുറന്നു മാനന്തവാടി ബത്തേരി വൈത്തിരി താലുക്കുകളിലാണ് കൺട്രോൾ റൂം തുറന്നത്

ഈ വഴിയുള്ള ഗതാഗതം പുർണ്ണമായി തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് ഭാഗികമായി പുനഃസ്ഥാപിച്ചു

മഴയിൽ വീട് തകർന്നു ആലങ്ങാട്ട് പഞ്ചായത്തിലെ തിരുവാലൂരിൽ ദുരിതാശ്ചാസ ക്യാമ്പ് തുറന്നു കണയന്നൂർ താലൂക്കിൽ കൺട്രോൾ റൂം തുടങ്ങി ജില്ലയിലെ തീരപ്രദേശങ്ങളായ ചെല്ലാനം കമ്പനിപ്പട്ട് ഫോർട്ടുകൊച്ചി എന്നിവിടങ്ങളിൽ കടലാ ക്രമണം ശക്തിയായി തുടരുകയാണ്

മീനച്ചിലാറും കൈവഴികളും കരകവിഞ്ഞു കുമരകം തിരുവാർപ്പ് അയ്മനം പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായി കോട്ടയം നഗരസഭ യുടെ പടിഞ്ഞാറൻ മേഖലയും വെള്ളത്തിലാണ്

ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞു

അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്

കാഞ്ചിയാർ വില്ലേജിൽ പുതുക്കാട് ഭാഗത്ത് മരം വീടിന്റെ മുകളിൽ വീണ് ഒരാൾക്ക് പരിക്കേറ്റു

വിക്ഷേപിക്കും

മേയത്തിന്മേൽ നിയമസഭയിൽ ഇന്ന് വോട്ടെടുപ്പ് ഉണ്ടായേക്കും വിമത എം എൽ എമാരെ തിരികെ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഊർജ്ജിത ശ്രമം തുടരുകയാണ്

അതിനിടെ കുമാരസ്ഥാമി ഗവൺമെന്റിന്റെ അവസാന ദിനമാ യിരിക്കും ഇന്ന് എന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ബി

യെദ്യൂരപ്പ ബംഗളുരുവിൽ പറഞ്ഞു കോൺഗ്രസിലെ ഏത് നേതാവിനെയും മുഖ്യമന്ത്രിയാക്കി സഖ്യഗവൺമെന്റിനെ രക്ഷിക്കാൻ തയ്യാറാണെന്ന് കുമാരസ്വാമി അറിയിച്ചതായി മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ ഡി

ശിവകുമാർ അറിയിച്ചു

വിരാട് കോഹ്ലി നയിക്കുന്ന ടീമിൽ റിഷബ് പാന്ഥ് മൂന്ന് ഫോർമാറ്റിലും വിക്കറ്റ് കീപ്പറാ കും

കോഴിക്കോട് ജില്ലാ ടീം ചാമ്പ്യൻമാരായി ്കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ തിരുവനന്തപു രത്തെയാണ് കോഴിക്കോട്ട് ഫൈനലിൽ തോൽപ്പിച്ചത് ആഭ്യന്തരവകുപ്പ് പരാജയമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരവകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു വടകര ഇരിങ്ങലിൽ നടന്ന കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പഠന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം

വേഴ്സിറ്റി കോളേജ് ഇന്ന് തുറക്കും

കനത്ത പൊലീസ് കാവലിലാണ് കോളേജ് തുറക്കുന്നത് കോളേജിൽ യൂണിറ്റ് കമ്മിറ്റി ആരംഭിക്കുമെന്ന് കെ എസ് യുവും എ ഐ എസ് എഫും അറിയിച്ചിട്ടുണ്ട്

ഷണം നടത്തുക കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ

അഭിജിത്തും ഭാരവാഹികളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാരസമരം എട്ടാം ദിവസത്തേക്ക് കടന്നു സമരത്തിന് പിന്തുണ അറിയിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് ട സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് എം

വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന ഗവൺ മെന്റിന്റെ നടപടി ജനദ്രോഹകരമാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സി നിവേദിത പറഞ്ഞു ബിജെപി മെമ്പർഷിപ്പ് കാമ്പയിന്റെ ഭാഗമായി മഹിളാമോർച്ച കോഴിക്കോട് ജില്ലാ സമിതി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

പ്രസിഡന്റായി സജി മഞ്ഞക്കടമ്പിലിനെ തെരഞ്ഞെടുത്തു പി ജെ ജോസഫും സി എഫ് തോമസും പങ്കെടുത്ത ജില്ലാതല യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകുമെന്ന് പി ജെ ജോസഫ് അറിയിച്ചു

ദുബായിൽ നിന്ന് രണ്ടു വിമാനങ്ങളിലെത്തിയവരിൽ നിന്നാണ് സ്വർണ്ണം പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു കോഴിക്കോട് കാസർകോട് സ്വദേശികളാണ് പിടിയിലായത്

കളെ നിയന്ത്രിച്ച് മാധ്യമ നൈതികത കാത്തുസൂക്ഷിക്കുന്ന വിധം പെരുമാറ്റചട്ടം പരിഷ്കരിക്കണമെന്ന് ഐ എസ് എം സംസ്ഥാന സമിതി കോഴിക്കോട് സംഘടി പ്പിച്ച സംസ്ഥാനതല മാധ്യമ ശില്പശാല ആവശ്യപ്പെട്ടു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു

കാക്കൂർ സ്വദേശി സുരേന്ദ്രനാണ് മരിച്ചത്